ഒഡീഷയിൽ നാശം വിതച്ചു

മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിച്ചത് ഇന്തൃയുടെ ഭീകര വിരുദ്ധ പോരാട്ടത്തിന് അന്താരാഷ്ട്ര സമൂഹം നൽകുന്ന പിന്തുണയാണ് കാണിക്കുന്നതെന്ന് ഫ്രഞ്ച് അംബാസിഡർ

അവസാന മൂന്ന് ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണം ഊർജ്ജിതം കൂടുതൽ വിവരങ്ങളുമായി സുരേഷ്

പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉത്തർപ്രദേശിലും ബീഹാറിലും തെരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോദന ചെയ്യും

ബീഹാറിലെ വാൽമീകി നഗറിൽ പൊതുസമ്മേളനത്തെട്ടു ആദ്ദേഹം അഭിസംബോധന ചെയ്യും

ലക്നൌവീലെ സ്ഥാനാർത്ഥിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായ രാജ്നൂറ്റ് സിങ്ങ് ഡൽഹിയിലും മോഹൻ ലാൽഗഞ്ചിലും ഇന്ന് പ്രച്ചര്യം നടത്തും

ന്യൂസ് ഡെസ്ക് ആകാശവാണി

മണ്ഡലങ്ങളിലൊന്നാണ് ലഡാക്ക്

ജെ

കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് പുറമേ രണ്ട് സ്വതന്ത്രരും മത്സരിക്കുന്നു

റേവ ജില്ലയിൽ ഇന്ന് നടക്കുന്ന പൊതു സമ്മേളനത്തെ ബി ജെ

അധ്യക്ഷൻ അമിത്ഷാ അഭിസംബോധന ചെയ്യും

നേതാവ് മായാവതി കേന്ദ്രമന്ത്രി നരേന്ദ്രസിംഗ് തോമർ ഉമാഭാരതി മുതിർന്ന കോൺഗ്രസ് നേതാവ് ജ്യോതിരാദിത്യ സിന്ധ്യ എന്നിവർ മുറേന ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ പ്രചാരണം നടത്തും

നേതാവുമായ മഹേഷ് ശർമ്മക്ക് കേന്ദ്ര തെരഞ്ഞെടൂപ്പ് കൃമ്മീഷൻ കാരണം കാണിക്കൽ നോട്ടീസ് നൽകി

തെരുഞ്ഞ്ടുപ്പ് ചട്ടം ലംഘിക്കുന്നതിൽ നിന്നും രാഷ്ട്രീയ പാർട്ടി പ്രതിനീധികൾ ഒഴിഞ്ഞു നിൽക്കണമെന്ന് കമ്മീഷൻ ഓർമ്മിപ്പിച്ചു

രാഹുൽ ഗാന്ധിയെ പപ്പു എന്ന് വിളിച്ചത്

എസ് ആർ ഒ ചെയർമാൻ ഡോ

ശിവൻ നാഗർകോവിലിൽ പറഞ്ഞു ഫോനി പോലുള്ള ചുഴലിക്കാറ്റുകളുടെ ദിശ മുൻകൂട്ടി മനസിലാക്കാനും വേണ്ട മുൻ കരുതലുകൾ എടുക്കാനും കാലാവസ്ഥ ഉപഗ്രഹങ്ങൾ സഹായിക്കുന്നുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി

ശിവൻ പറഞ്ഞു

ബംഗ്ലാദേശിലെ അഞ്ച് ലക്ഷം പേരെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റി പാർപ്പിച്ചു

തീരമേഖലകളിൽ അതീവ ജാഗ്രത നിർദേശം നൽകിയിട്ടുണ്ട്

ആൾക്കാരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചതിനാൽ ജീവഹാനി അധികം ഉണ്ടായിട്ടില്ലെന്ന് ദേശീയ ദുരന്തനിവാരണ സേന ഡി ഐ

ന്യൂസ് ഡെസ്ക് ആകാശവാണി

മാത്യക പെരുമാറ്റ ചട്ടം ലംഘിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു

പുൽവാമ ആക്രമണത്തിന്റെ അടുത്ത ദിവസം തന്നെ ആക്രമണത്തെ യു

അപലപിക്കണമെന്ന് നിലപാടാണ് ഫ്രാൻസ് സ്വീകരിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു പുൽവാമ ആക്രമണത്തിന്റെ അടുത്ത ദിവസം തന്നെ മസൂദ് അസറിനെ ആഗോള ഭീകരനായി യു എൻ പ്രഖ്യാപിക്കണമെന്ന് ഫ്രാൻസും ബ്രിട്ടണും അമേരിക്കയും വീണ്ടും ആവശ്യപ്പെട്ടു പുൽവാമ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് യു എൻ നട്ടപടികൾ സജിവമാക്കിയതെന്നും ഫ്രഞ്ച് അംബാസിഡർ പറഞ്ഞു

എല്ലിൽ കിംഗ്സ് ഇലവൻ പഞ്ചാബിനെ ഏഴു വിക്കറ്റിന് തോൽപ്പിച്ച് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പ്തേ ഓഫ് പ്രതീക്ഷ നിലനിർത്തി

ഇന്ന് വൈകിട്ട് നാലിന് ഡൽഹിയിൽ നടക്കുന്ന മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് ഡൽഹി ക്യാപ്പിറ്റൽസിനെ നേരിടും രാണ്ടാമത്തെ മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ സൺ റൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും

ശക്തമായ മഴയ്യുട്ടേയും കാറ്റിന്റേയും ഫലമായി സംസ്ഥാനത്തെ എല്ലാ ജില്ലകളില്ലേയും കാർഷിക വിളകൾക്കും ജന്തുജാലങ്ങൾക്കും ് നാഗ്ശ്ര് സംഭവിച്ചതായി ആകാശവാണി വാർത്തലേഖകർ വ്യക്തമാക്കി ് ് ് ് ് മാശം കാലാവസ്ഥ ഏറെ ബാധിച്ചത് സഹാറൽ പൂർ ബറദൌൺ മഹാരാജ് ഗഞ്ച് കുശിനഗർ പീലിഭിത്ത് ബാഗ്പത്ത് വാരണാസി തുടങ്ങിയ ജില്ലകളെയാണ് വയലിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് വാരണാസിയിൽ ഒരാൾ മിന്നൽ പിണരേറ്റ് മരിച്ചത് മരം കടപുഴകി വീണ് മറ്റൊരാൾക്കും ജീവൻ നഷ്ടപ്പെട്ടു

ഇന്നലെ രാത്രിയാണ് കിഴക്കൻ മേഖലയിൽ സംഘർഷമുണ്ടായത്

വോഡഫോൺ എം പൈസ ഫോൺ പേ എന്നിവ അട്ടക്ക്മുള്ള കമ്പനികൾക്കാണ് പിഴ ചുമത്തിയത് വെസ്റ്റേൺ യൂണിയ്ൻ ഫിനാൻഷ്യൽ സർവീസ് മണിഗ്രാം പേയ്മെന്റ് സിസ്റ്റ്ടസ്റ് എന്നീ കമ്പനികൾക്കും പിഴയുണ്ട്

സമാധാന ചർച്ചകൾക്ക് ആക്കം കൂട്ടുന്നതിന്റെ ഭാഗമായാണ് ഇത് അഫ്ഗാൻ ഗവൺമെന്റുമായി നേരിട്ട് ചർച്ച നടത്താൻ ഇതുവരെ താലിബാൻ തയാറായിട്ടില്ല ഖത്തറിൽ അമേരിക്കൻ പ്രതിനിധിയുമായാണ് താലിബാൻ ചർച്ച നടത്തിവരുന്നത് അഫ്ഗാനിസ്ഥാനിൽ സ്ഥായിയായ സമാധാനം കൊണ്ടുവരുന്നത് ലക്ഷ്യമിട്ട് തലസ്ഥാനമായ കാബൂളിൽ മൂന്ന് ദിവസമായി നടന്നുവന്ന സമാധാന ചർച്ചകളുടെ തുടർച്ചയായാണ് തടവുകാരെ വിട്ടയയ്ക്കാൻ തീരുമാനിച്ചത്

വ്യാഴാഴ്ച നടന്ന സ്ഫോടനത്തിൽ ആറ് പേരും കൊല്ലപ്പെട്ടു ഒരേ സംഘം തന്നെയാണ് രണ്ട് സ്ഫോടനങ്ങളും നടത്തിയതെന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ അറിയിച്ചു തിഗുല ഗ്രാമത്തിലാണ് സ്ഫോടനമുണ്ടായത്